പശ്ചിമബംഗാൾ സി

ഐ

യുട്ട് പു്തിയ ഡയറക്ടറായി ഋഷികുമാർ ന് ശുക്സ ചുമതലയേറ്റു

കാൻസർ ദിനം

ബി ഐ സുപ്രീംകോടതിയിൽ സമർപ്പിച്ച ഹർജി ഇന്ന് പരിഗണിക്കില്ല ഹർജിയിൽ കോടതി നാളെ വാദം കേൾക്കും കൂടുതൽ വിവരങ്ങളുമായി കരോൾ അബ്രഹാം

ബി ഐ നീക്കത്തെ സംബന്ധിച്ച പ്രതിപക്ഷ പ്രതിഷേധത്തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളിലും ബഹളം

രാജ്യസഭയിൽ നടപടികൾ ആരംഭിച്ച് മിനിട്ടുകൾക്കുള്ളിൽ തന്നെ തൃണ്ടമൂർ കോൺഗ്രസ് അംഗങ്ങൾ പ്രതിഷേധവുമായി രംഗത്തെത്തിട്ട് കേന്ദ്രഗവൺമെന്റ് സി

ഐ യെ രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി ്ഉപയോഗിക്കുന്നു എന്ന് ആരോപിച്ച് ടി

മറ്റ് പ്രതിപക്ഷ പാർട്ടികളും പ്രതിഷേധത്തോടൊപ്പം ചേർന്നു തുടർന്ന് രാജ്യസഭാ അധ്യക്ഷൻ എം

റഫേൽ ഇടപാടിൽ സംയുക്ത പാർലമെന്ററി കമ്മറ്റിയുടെ അന്വേഷണം ആവശ്യപ്പെട്ട് ചില കോൺഗ്രസ് അംഗങ്ങളും രംഗത്തെത്തി

ഇന്ന് രാവിലെയാണ് ശ്രീ രാജ്നാഥ് സിംഗ് ഗവർണറെ ഫോണിൽ വിളിച്ചത് അതിനിടെ ഗവർണർ സംസ്ഥാനത്തെ സംഭവവികാസങ്ങൾ സംബന്ധിച്ച് പശ്ചിമബംഗാൾ ചീഫ് സെക്രട്ടറിയോടും ഡി ജി

പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷനായ സമിതിയാണ് നിയമനം സംബന്ധിച്ച തീരുമാനം എടുത്തത് രണ്ട് വർഷത്തേക്കാണ് നിയമനം

ബി

അഴിമതി ആരോപണത്തെ തുടർന്ന് സി ബി ഐ ഡയറക്ടറായിരുന്ന അലോക് കുമാർ വർമ്മയെ പുറത്താക്കിയതിനെ തുടർന്നാണ് പുതിയ നിയമനം

ഗുവാഹത്തിയിൽ രണ്ടാമത് ആസിയാൻ ഇന്ത്യ യുവജന ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ലോക ടൂറിസം കൌൺസിലിന്റെ റിപ്പോർട്ടനുസരിച്ച് ഇന്ത്യ ടൂറിസം മേഖലയിൽ മൂന്നാം സ്ഥാനത്താണ്

മൂന്നു ബാഗുകളിലായുണ്ടായിരുന്ന സ്ഫോടക വസ്തുക്കൾ റെയിൽവേ പോലീസിന്റെ പതിവ് പരിശോധനയ്ക്കിടയിലാണ് കണ്ടെടുത്ത് മറ്റൊരു സംഭവത്തിൽ അബോധ് അസ്സാം എക്സ്പ്രസ് ട്രെയിനിലെ കോച്ചിൽ നിന്നും ജെലാറ്റിൻ സ്റ്റിക്കുകളും ഡെറ്റനേറ്റേഴ്സും സുരക്ഷാസേന പ്പിട്ടികൂടി പോലീസ് രണ്ട് സംഭവങ്ങളിലും അന്വേഷണം ആരംഭിച്ചിട്ടു്ണ്ട്

കോഴിക്കോട് വിമാനത്താവളത്തിന്റെ വികസനത്തിന് ഗവൺമെന്റ് മുന്തിയ പരിഗണനയാണ് നൽകിവരുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞു ആവശ്യത്തിന് ഭൂമി ലഭ്യമല്ലെന്നതാണ് വികസനത്തിന് തടസമാകുന്നത് നടപടികൾ അന്തിമഘട്ടത്തിലാണ് കരിപ്പൂരിൽ വലിയ വിമാനങ്ങൾ ഇറക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് കരിപ്പൂരിനെ ഹജ്ജ് എംബാർക്കേഷൻ സെന്റർ ആയി മാറ്റണമെന്ന സംസ്ഥാനത്തിന്റെ ആവശ്യം കേന്ദ്രം അംഗീകരിച്ചതായി മുഖ്യമന്ത്രി പറഞ്ഞു

ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി

എസ് സി അഡ്വൈസ് മെമ്മോ കിട്ടിയവരുടെ അപ്പീൽ കോടതി അനുവദിച്ചു

കാൻസറെന്ന മാരകരോഗത്തിനെതിരെ ലോകമെമ്പാടുമുള്ള ഭരണസംവിധാനങ്ങളേയും വ്യക്തികളേയും ബോധവാന്മാരാക്കുക എന്നതാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം അന്താരാഷ്ട്ര കാൻസർ പ്രതിരോധ സംഘടനയുടെ ആഭിമുഖ്യത്തിൽ മൂന്നു വർഷം നീണ്ടുനിൽക്കുന്ന പരിപാടിയ്ക്ക് ഇന്ന് തുടക്കമായി രോഗത്തിനെതിരെ വൃക്താധിഷ്ഠിത പ്രതിരോധം എന്നതാണ് ഇത്തവണത്തെ കാൻസർ ദിന പ്രമേയം കാൻസർ പ്രതിരോധത്തെക്കുറിച്ചും അതിജീവനത്തെക്കുറിച്ചും പ്രമുഖ കാൻസർ രോഗവിദഗ്ധൻ ഡോ

ഗംഗാധരൻ ആകാശവാണിയോട്

വെങ്കയ്യനായിഡു രാജ്യത്തെ ഡോക്ടർമാരോടും നയരൂപീകരണ രംഗത്തുള്ളവരോടും പ്പിദഗ്ധരോടും ആവശ്യപ്പെട്ടു

റോഡ് സുരക്ഷയിൽ അവബോധം സൃഷ്ടിക്കുകയാണ് ലക്ഷ്യം

ഇന്നലെ അബുദാബിയിലെത്തിയ മാർപ്പാപ്പയ്ക്ക് അബുദാബി കിരീടവകാശി ഷെയ്ക്ക് മുഹമ്മദ് ബിൻ സായിദ് വിമാനത്താവളത്തിൽ വരവേൽപ്പ് നൽകി സർവ്വമത സമ്മേളനത്തിൽ പങ്കെടുക്കാനുള്ള അബുദാബി കിരീടവകാശിയുടെ പ്രത്യേക ക്ഷണപ്രകാരമാണ് മാർപ്പാപ്പയുടെ സന്ദർശനം

എസ് പ്രസിഡന്റ് ഡോണൾഡ് ട്രംപ് എന്നാൽ ഇതടക്കമുള്ള നിരവധി മാർഗങ്ങൾ തങ്ങളുടെ പരിഗണനയിലുണ്ടെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി